പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഭിസംബോധന ചെയ്യും

ബ്രിക്സ് രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര ഭീകരവാദത്തിനെതിരെ സമഗ്രമായ സമ്മേളനം വ്യൂണ്മെന്നും രാഷ്ട്രങ്ങൾ

വീടുകളുടെ നിർമാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി

ബൽജിയത്തിനെതിരെ ഇന്തൃയ്ക്ക് വിജയം

അന്താരാഷ്ട്രതലത്തിലെ രാജ്യത്തിന്റെ വീക്ഷണഗതിയ്ക്ക് ഊന്നൽ നൽകിയാകും ശ്രീ

ലോകഫോറത്തിൽ രാജ്യത്തിന്റെ പ്രകടനം ശക്തവും പ്രവർത്തന അധിഷ്ഠിതവുമായ ഫലമായിരിക്കും കൊണ്ടുവരിക എന്ന് ഐക്യരാഷ്ട്രസംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരാംഗം സയദ് അക്ബറുദ്ദീൻ വിശ്വാസം പ്രകടിപ്പിച്ചു

ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ചുള്ളൂ ഇരുരാജ്യങ്ങൾക്കും താൽപര്യമുള്ള പ്രാദേശിക ആഗോള വികസ്ത്രപ്പ്ക്ബന്ധിച്ചും ഇരുവരും ചർച്ചകൾ നടത്തിയതായി വിദേശകാരൂമന്ത്രാലയത്തിന്റെ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

ചബാഹർ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇന്ത്യയുടെ എല്ലാവിധ സഹകരണവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു സൈപ്രസ് പ്രസിഡന്റുമായും ഗ്രീക്ക് പ്രധാനമന്ത്രിയുമായും ശ്രീ മോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ബ്രസീൽ സീയറ ലിയോണ ലാത്പിയ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉഗാണ്ട പ്രധാനമന്ത്രി റുഖാന റുഗുണ്ടയുമായും ശ്രീ

കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇന്ത്യ ഉഗാണ്ട ബന്ധം സൌത്ത് സൌത്ത് കോ ഓപ്പറേഷന് ഒരു പാഠപുസ്തക വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ജപ്പാനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി മറ്റൊരു ട്വീറ്റിൽ സന്ദേശത്തിൽ അറിയിച്ചു സിങ്കപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ ക്രൊയേഷ്യയുടെ ധനകാര്യമന്ത്രി ഗോർഡാൻ ഗ്രിളിക്ക് റാഡ്മാൻ യൂറോപ്യൻ യൂണിയൻ വിദേശനയ നേതാവ് ഫെഡറിക്ക മൊഹേറിനി മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് എന്നിവരുമായും ശ്രീ

ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ബ്രിക്സ് രാജ്യങ്ങൾ

എൻ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ന്യൂയോർക്കിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞദിവസം എസ്തോണിയൻ പ്രസിഡന്റ് കെർസ്തി കൽജുലെയ്ദുമായി വിവിധ വിഷയങ്ങളിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രസ്താവന

യഥാർത്ഥ രാജ്യതന്ത്രജ്ഞനെയും സുഹൃത്തിനെയുമാണ് ഇന്ത്യക്ക് നഷ്ടമായത് എന്നും ശ്രീ

ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു ജാക്ക് ഷിറാക്ക് എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൌത്യത്തിന്റെ ലക്ഷ്യം

്ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് വിദഗ്ധരുമായി ആലോചിച്ച ശേഷം തുടർനടപടികൾ സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് അറിയിച്ചു പള്ളിയിൽ പ്രതിഷേധിച്ച യാക്കോബായ വിഭാഗത്തെ അറസ്റ്റ് ചെയ്തു നീക്കിയ ശേഷമാണ് കളക്ടർ പള്ളി ഏറ്റെടുത്തത് പള്ളിയുടെ താക്കോൽ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു

സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു പാലാ കാർമൽ പബ്ലിക് സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്

തുടർന്ന് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണും

പശ്ചിമ ബംഗാൾ തമിഴ്നാട് ഗുജറാത്ത് പഞ്ചാബ് ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്

് വിനോദ സഞ്ചാരവും തൊഴിലും എല്ലാവരുടെയും നല്ല ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദ സഞ്ചാര ദിന് സന്ദേശ്യം ഒരു റിപ്പോർട്ട്

അന്താരാഷ്ട്ര തലത്തിൽ വിനോദ സഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ആഗോളതലത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മൂല്യങ്ങളെ വിനോദസഞ്ചാരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം

സംസ്ഥാനത്തിന്റെ വളർച്ചയിലും വിനോദ സഞ്ചാര മേഖലയുടെ പ്രാധാന്യം വർധിച്ചുവരികയാണ്

വിനോദ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തും ഇന്ന് നിരവധി പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഹമ്മദാബാദ്ദിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ ഇന്നലെ നടന്ന ഇന്ത്യയുടെ പരിവർത്തുനം വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിലെ ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി